തോമസ് ഐസ്ക്

ജലീൽ അറിയിച്ചു

കൂടുതൽ എം

എ മാർ ബി ജെ

പക്ഷത്തേക്ക്

ഫാറ്റ്ബോയ് എന്നറിയ പ്പെടുന്ന ജി എസ്

മാർക്ക് ദ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന ചന്ദ്രയാൻ രണ്ടാം ദൌത്യത്തിൽ ചന്ദ്രനെ വലംവയ്ക്കുന്ന ഒർബിറ്റർ വിക്രം എന്ന റോബോട്ടിക് ലാന്റർ പ്രൊഗ്യാൻ എന്ന റോവർ എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായി ഇന്ത്യൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ആദ്യ ക്രയോ ജനിക് എഞ്ചിനാണ് മാർക്ക് ദ റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങുന്നു തരത്തിലാണ് റോബോട്ടിക് ലാന്ററിന്റെ നിർമ്മാണം

തദ്ദേശീയമായി നിർമ്മിച്ച ലാൻർ വിജയകരമായി ഇറ ങ്ങിയാൽ അമേരിക്കയും റഷ്യയും ചൈനയും സ്വന്തമാക്കിയ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യയും ഉടമകളാകും

തുടർന്ന് പേടകത്തെ ഘട്ടങ്ങളായി ഉയർത്തി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും

ലാൻറിൽനിന്ന് പ്രഗ്യാൻ എന്ന റോവർ ഉപരിതലത്തിലിറങ്ങി ഗവേഷണം ആരംഭിക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെ പ്രമുഖർ നാളെ പുലർച്ചെ വിക്ഷേപണത്തിന് സാക്ഷികളാകും

കാരുണ്യ ആരോഗ്യ ഇൻഷൂറൻസ് പദ്ധതി അർഹരായ എല്ലാവർക്കും ലഭ്യമാക്കുമെന്ന് മന്ത്രി ഡോ

എഫ് ഗവൺമെന്റ് നൽകിയതായും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു അമൃത് പദ്ധതി തദ്ദേശ് സ്വയംഭരണ വകുപ്പ് പരിശോധിക്കുന്നുണ്ടെന്നും ആലപ്പുഴ ജില്ലയിൽ പദ്ധ തിയിൽ അഴിമതി നടന്നിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു മലപ്പുറം ജില്ലയിലെ പൂർത്തിയാക്കിയ റോഡുകളും പാലങ്ങളും മന്ത്രി ജി സുധാകരൻ ഇന്നും നാളെയുമായി നാടിന് സമർപ്പിക്കും വിവിധ നിയോ ജക മണ്ഡലങ്ങളിലെ റോഡ് നവീകരണ പ്രവൃത്തികളും അദ്ദേഹം ഉദ്ഘാ ടനം ചെയ്യും

ഉച്ചയ്ക്ക് മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസും വൈകീട്ട് കിളിനക്കോട് പാറക്കണ്ണി വേങ്ങര കുന്നുംപുറം റോഡുകളുടെ നവീകരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും പാത്തിക്കുഴിപാലം എടക്കര മരുതറോഡ് നവീകരണം എന്നിവയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് ബിൽകൊ ണ്ടുവരുമെന്ന് മന്ത്രി ഡോ

ടി

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം ദൌർഭാഗൃകരമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻപാടില്ലെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു

ഐ യുടെ നയസമീപനത്തിന് വിരുദ്ധമായ നടപടിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നതെന്ന് മന്ത്രി ഡോ

ഇതു തിരുത്തേണ്ടതാണെന്നും എസ്

മോശം സംഘടനയാണെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ആക്രമണ രാഷ്ട്രീയം ആരുനടത്തിയാലും അംഗീകരിക്കാനാവില്ലെന്ന് ഡോ

കുത്തേറ്റ് ആശു പത്രിയിൽ കഴിയുന്ന അഖിലിനെ സന്ദർശിച്ചശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ പേരിൽ ഗുണ്ടക ളുടെ വിളയാട്ടമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്തരം അതിക്രമങ്ങൾ അനുവദിക്കാൻ പാടി ല്ലെന്നും ശശിതരൂർ ആവശ്യപ്പെട്ടു

യിലെ സമാധാനപ്രിയരായ വിദ്യാർത്ഥികൾക്കു പോലും ജീവിക്കാനാവാത്ത സാഹചര്യമാണ് തിരുവനന്തപുരം യൂണിവേ ഴ്സിറ്റി കോളേജിലെന്ന് കെ

എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിടണം യൂണിവേഴ്സിറ്റി കോളജ് അട ച്ചുപൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ വേണമെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമസംഭവത്തിൽ പ്രതികളായ എസ്

ഐ നേതാക്കൾ പി എസ് സി

യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പരീക്ഷയെഴുതാൻ അനധികൃത സൌകരൃം ഒരുക്കികൊടുത്തെന്നും കോപ്പിയടിച്ചാണ് ഇവർ ഉന്നത റാങ്ക് നേടിയതെന്നും ആരോപണം ഉയരുന്ന സാഹചര്യത്തി ലാണ്അന്വേഷണം ഈമാസം ഒന്നാംതീയ്യതി പുറത്തിറക്കിയ കെ എ

നാല് ബറ്റാലിയനിലെ പൊലീസ് കോൺസ്റ്റബിൾ നിയമനത്തിനുള്ള റാങ്ക് പട്ടികയിലാണ് ഇവർ മുന്നിലെത്തിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമസംഭവത്തിൽ കേസുമായി മുന്നോട്ടുപോകുമെന്ന് അക്രമത്തിനിരയായ അഖിലിന്റെ പിതാ വ് ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ഇക്കാര്യത്തിൽ സി

എം പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും ആരും ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടി ല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

ക്കുപുറമെ വിനോദനി കുതികൂടി ഈടാക്കാനുള്ള തീരുമാനം തൽക്കാലം നടപ്പാക്കില്ല

മത്സ്യതൊഴിലാളി കൾ ബുധനാഴ്ചവരെ ഈ ഭാഗങ്ങളിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു കർണ്ണാടകയിൽ വിമത എം

എ മാരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ പാളുന്നതായി റിപ്പോർട്ട്

എൽ

ടി

നാഗരാജ് മുനിരത്ന എന്നിവർ അടക്കം മൂന്നുപേർകൂടി ബിജെപി നേതാക്കൾക്കൊപ്പം മുംബൈയിലേക്ക് പോയതായി റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യമന്ത്രി കുമാരസ്ഥാമി ദേവഗൌഡയുമായി വിഷ്യങ്ങൾ ചർച്ചചെയ്തു അതിനിടെ കർണ്ണാടകയിൽ നാളെ വിശ്വാസവോട്ടെടുപ്പിന് ആവശ്യമുന്നയിക്കുമെന്ന് ബി

സംസ്ഥാന അധ്യക്ഷൻ ബി

യെദ്യൂരപ്പ പറഞ്ഞു ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പൃന്മാരെ ഇന്നറിയാം

സംസ്ഥാനത്തെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ തിരു വനന്തപുരത്ത് ഉന്നതതലയോഗം ചേരും ലോഡ്ഷെഡ്സിംഗ് ഏർപ്പെടു ത്തേണ്ട സാഹചര്യമുണ്ടോ എന്ന് തീരുമാനിക്കാനാണ് യോഗം ചേരുന്ന ത്

സി പരീക്ഷാചോദ്യങ്ങൾ ഔദ്യോഗിക രേഖകൾ അടിസ്ഥാ നമാക്കി തയ്യാറാക്കാൻ ചോദ്യകർത്താക്കൾക്ക് നിർദ്ദേശം നൽകുമെന്ന് ചെയർമാൻ എം

വീട് നിർമ്മിച്ചുന്ൽകാമെന്ന വാഗ്ദാനം ലംഘിച്ചു എന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിൽ നാളെ വയനാട് ലീഗൽ സർവ്വീസസ് അതോറിട്ടി ക്കുമുന്നിൽ ഹാജരാകാൻ നടി മഞ്ജുവാര്യർക്ക് നോട്ടീസ് നൽകി

കോളനിയിലെ വീടുകൾ അറ്റകുറ്റ പ്പണി ചെയ്യുകയോ എല്ലാവർക്കുമായി പത്തുലക്ഷംരൂപ നൽകുകയോ ചെയ്യാമെന്ന് ഫൌണ്ടേഷൻ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ കോള നിക്കാർ ഇതംഗീകരിച്ചില്ല തുടർന്നാണ് മഞ്ജുവാര്യരോട് ഹാജരാകാൻ ലീഗൽ സർവ്വീസസ് അതോറിട്ടി ആവശ്യപ്പെട്ടത് ആന്തൂരിലെ സാജന്റെ ആത്മ ഹ ത്യ യിൽ പഞ്ചാ യത്ത് പ്രസിഡന്റിനെ രക്ഷിക്കാനാണ് സി

എം

ഇതിനുവേണ്ടി സാജന്റെ കുടുംബത്തിനെതിരെ പാർട്ടി അപവാദപ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറ ഞ്ഞു

സാഹിത്യനായകരും സർഗ പ്രതിഭകളും ലൃഹരി വിരുദ്ധ മുന്നേറ്റ ങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് സാഹിതൃകാരൻ യു

കേരള മദ്യനിരോധന സമിതി സംഘടിപ്പിച്ച മദ്യ ഭരണ ഭീകരതക്കെതിരെ പ്രതിഷേധ പരിപാടി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡി യത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ പൈപ്പ് പൊട്ടലിന് ശാശ്വതപരിഹാരം കാണ ണമെന്ന് എഴുത്തുകാരൻ എം

തോമസ് ഐസക് രചിച്ച് ജനകീയ ബദലുകളുടെ നിർമ്മിതി ഊരാളുങ്കൽ സൊസൈറ്റി അനുഭവം എന്ന പുസ്തകത്തിന്റെ പ്രകാ ശനം കോഴിക്കോട്ട് നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം ഊരാളുങ്കൽ പോലുള്ള മാതൃകാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇത്തരം മേഖലകളിലേക്കുകൂടി വ്യാപിപ്പിക്കണമെന്ന് എം ടി പറഞ്ഞു കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ വൈശാഖൻ ചടങ്ങിൽ അധ്യക്ഷനാ യിരുന്നു ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാരുടെ ഹെൽമെറ്റ് കാര്യ ത്തിൽ വ്യാപകമായ ബോധവൽക്കരണം നടത്താൻ ഗതാഗതവകുപ്പിന്റെ തീരുമാനം പ്രചാരണവും ബോധവൽക്കരണവും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ബുധനാഴ്ച മന്ത്രി എ

ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം ചേരും കോഴിക്കോട് ജില്ലയിൽ രാജ്യാന്തര നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി ആവശ്യം ശക്തമാക്കുമെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ

ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താനാണ് അസോസിയേഷന്റെ തീരു മാനം ലോകാദ്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ അറ്റകുറ്റപ്പണി രണ്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പുരാവസ്തുവകുപ്പ് അറിയിച്ചു താജ്മ ഹലിന് സാധാരണ നടത്തുന്ന അറ്റകുറ്റപ്പണികൾക്കു പുറമെ ചില തകരാ റുകൾ പരിഹരിക്കുന്നതിന് പ്രത്യേക ജോലികളും നടക്കുന്നതായി ആർക്കി യോളജിക്കൽ സർവ്വേ ഓഫ് ഇന്ത്യ വടക്കൻമേഖലാ മേധാവി വസന്ത് സ്വർണകർ ആഗ്രയിൽ പറഞ്ഞു